പ്രബുന്ധേൽഖണ്ഡ് അതിവേഗ പാതയുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവ്വഹിച്ചു പദ്ധതി മേഖലയിലെ വികസനത്തിന് ആക്കം കൂട്ടുമെന്ന് പ്രധാനമന്ത്രി

ഇന്നിംഗ്സിൽ ന്യൂസിലാന്റ് പതറുന്നു

പദ്ധതി മേഖലയിലെ വികസനത്തിന് ആക്കം കൂട്ടുമെന്നും ആയിരക്കണക്കിന് തൊഴിൽ സൃഷ്ടിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ഐ

മദ്രാസിൽ ഇന്നലെ വിദ്യാർത്ഥികളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് അയൽർജ്ജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് പൌരത്വം നൽകാനാണ് നിയമം കൊണ്ടുവന്നതെന്ന് സി

സംബന്ധിച്ച ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തിൽ എല്ലാവർക്കും പ്രതിഷേധിക്കാനുള്ള അവസരമുണ്ടെങ്കിലും അത് നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിലായിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു

അമേരിക്കയിൽ കൊറോണ വൈറസ് ബാധ മൂലമുള്ള ആദ്യമരണം റിപ്പോർട്ട് ചെയ്തു

ഇറാൻ അധികൃതരുമായി ഇത് സംബന്ധിച്ച ചർച്ച തുടരുകയാണ്

കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ ബന്ധപ്പെട്ട ആരോഗൃമന്ത്രിമാരുടെ നേരിട്ടുളള മേൽനോട്ടത്തിൽ രോഗ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു

സംഘർഷത്തിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ രണ്ട് സംഘങ്ങൾക്കും കമ്മീഷൻ രൂപം നൽകി

ശ്രീവാസ്തവ ഡൽഹി പോലീസ് കമ്മീഷണറുടെ അധിക ചുമതല ഏറ്റെടുത്തു

എസ്

കമാൻഡോകൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലന കേന്ദ്രം ഷൂട്ടിങ്ങ് റേഞ്ച് പാർപ്പിട സൌകര്യങ്ങൾ എന്നിവ കെട്ടിട സമുച്ചയത്തിലുണ്ട്

ലൈഫ് മിഷൻ വഴി രണ്ടു ലക്ഷം വീട് പൂർത്തീകരിച്ചതിന്റെ പ്രഖ്യാപനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം

സാങ്കേതികപ്രശ്നങ്ങളാൽ ആ ഘട്ടത്തിൽ അർഹതാലിസ്റ്റിൽപ്പെടാത്തവരുണ്ട് നാലരലക്ഷത്തിലേറെ പേർക്ക് വീടു ലഭിക്കുമ്പോൾ പിന്നീട് കുറച്ചുപേർക്കേ വീട് ലഭിക്കാനുണ്ടാകു

അർഹതയുള്ളവരുടെട്ട ലിസ്റ്റ് തയാറാക്കുന്നതിനും ഭവനം നൽകുന്നതിനുമുള്ള നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ശൈലജ അറിയിച്ചു

ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളജിൽ മരിച്ച അന്തേവാസിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം ന്യുമോണിയ ആണെന്ന് പറയുന്നത്

സംഭവത്തിൽ ആരോഗ്യ വകുപ്പും ജില്ലാ ഭരണകൂടവും അന്വേഷണം നടത്തുന്നുണ്ട്

പൊങ്കാല്പ്പ് ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ന്റേതൃത്വത്തിൽ ചേർന്ന ഉന്നതതലയോഗം വിലയിരുത്തി എല്ലാ വകുപ്പുകളും തികഞ്ഞ ജാഗ്രതയോടെ ചുമതലകൾ നിർവഹിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

ഷിംലയിൽ ഇന്ന് മഴയും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ചെന്നൈ എഫ് സി ഗോവയെ തകർത്തത്